പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ

അടിയന്തര സാഹചര്യത്തിൽ പ്പൊതുജനങ്ങൾക്ക് സഹായം ലഭ്യമാക്കുന്ന സ്ട്വിധാനം കേന്ദ്രമന്ത്രി രാജ് നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു

പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ മാഘി പൂർണ്ണിമയോടനുബന്ധിച്ചുള്ള പുണ്യസ്നാനം ഇന്ന്

ബന്ധപ്പെട്ട് സി

ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഏഴ് പേർ പോലീസ് കസ്റ്റഡിയിൽ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ

ഡീസൽ എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനാക്കി മാറ്റിയ പതിനായിരം കുതിരശക്തിയുള്ള പ്രഥമ ഇരട്ട റെയിൽവേ എഞ്ചിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവ്വഹിച്ചു തുടർന്ന് ശ്രീ മോദി സീർ ഗോവർദ്ധനിലെ സന്ത് രവി ദാസ് ക്ഷേത്രം സന്ദർശിക്കുകയും സന്ത് രവിദാസിന്റെ ജന്മദേശത്തെ വിവിധ വികസന പരിപാടികളുടെ ശിലാസ്ഥാപന പരിപാടികളിൽ സംബന്ധിക്കുകയും ചെയ്തു മനുഷ്യകുലത്തിനും സമൂഹത്തിനുമായി ഗ്രൂരു ്രവി ദാസ് ഉയർത്തിപിടിച്ച ആശയങ്ങൾ പ്രധാനമന്ത്രി വിവേചനങ്ങളുമില്ലാതെ എല്ലാവ്രെയും ഒരുപോലെ കാണുന്ന ഇന്ത്യയാണ് ഗുരു രവി ദാസ് സ്ഥപ്നം കണ്ടെതെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാല്ര് വർഷമായി ഈ തത്വത്തിലൂന്നിയാണ് തന്റെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് പ്രധാനമന്ത്രി ജനആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുമായി ബനാറസ് ഹിന്ദു സർവ്വകലാശാലയിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

വിശദാംശങ്ങളുമായി വീണ മുകുന്ദൻ വനിതകളുടെ സുരക്ഷയ്ക്കായുള്ള ഇ

എന്നറിയപ്പെടുന്ന അടിയന്തര പ്രതികരണ സംവിധാനം അടക്കമുള്ള സംരംഭങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഉദ്ഘാടനം ചെയ്തത് കേരളം ആന്ധ്രാപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് തമിഴ്നാട് ഗുജറാത്ത് ജമ്മുകശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് സേവനങ്ങൾ ലഭ്യമാകുക

സ്മാർട്ട് ഫോണിലെ പവർ ബട്ടൺ മൂന്ന് തവണൂ അമർത്തുമ്പോൾ അടിയന്തര പ്രതികരണ കേന്ദ്രത്തിലേക്ക് കോൾ ലഭ്യമാകും

ലൈംഗിക ് അതിക്രമങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിംഗ് സിസ്റ്റം സുരക്ഷിത നഗരത്തിനായുള്ള മോണിറ്ററിംഗ് പോർട്ടൽ എന്നിവയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തു

പിങ്ക്ലീന പ്രദേശത്ത് ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് ശ്രീനഗറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ലഫ്റ്റനന്റ് ജനറൽ കെ എസ് ധിലോൺ ഇക്കാര്യം അറിയിച്ചത്

എഫ് ജവാൻമാർക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ

പിന്തുണയുള്ള ജയിഷെ മുഹമ്മദ് ഭീകരസംഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞു

എഫ് ജവാൻമാരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

പുൽവാമയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന അക്രമസംഭവങ്ങളെ തുടർന്നാണ് വെള്ളിയാഴ്ച മുതൽ കർഫ്യൂ ഏർപ്പെടുത്തിയത് ജനങ്ങൾക്ക് അവശ്യസാധനങ്ങൾ വാങ്ങുന്നതിനാണ് കർഫ്യൂവിൽ ഇളവ് വരുത്തിയതെന്ന് ജില്ല മജിസ്ട്രേറ്റ് അറിയിച്ചു

നാഗേശ്വര റാവുവിനെ നിയമിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടുള്ളൂ ഹൂർജിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു സ്ഥിർ ഡയറക്ടറെ നിയമിച്ച സാഹചര്യത്തിൽ താൽക്കാലിക ഏയറക്ടർ നിയമനം സംബന്ധിച്ച് ഹർജി അപ്രസക്തമാണെന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര വിനീത് സരൺ എന്നിവരടങ്ങിയ ബഞ്ച് നിരീക്ഷിച്ചു

എസ് ഓഫീസർ ഋഷികുമാർ ശുക്സയെ സി ബി ഐ ഡയറക്ടറായി നിയമിച്ചിരുന്നു

കുഭമേളയുടെ അവസാന സ്നാനം മഹാശിവരാത്രി ദിനത്തിലാണ് നടക്കുന്നത്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപട്ടി

ഐ എം പെരിയ ലോക്കൽ കമ്മിറ്റിയംഗം എ പീതാംബരൻ അടക്കം ഏഴ് പേരാണ് പിടിയിലായത് ഇവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വരുന്നു കൊലപാതകം നടന്നയിടത്ത് നിന്ന് ലഭിച്ച മൊബൈൽ ഫോണുകളാണ് നിർണ്ണായക തെളിവുകളായത്

വ്രതശുദ്ധിയുടെ നിറവിൽ ആറ്റുകാൽ പൊങ്കാലയിടാനെത്തുന്ന ഭക്തലക്ഷങ്ങളെ വരവേൽക്കാൻ നഗരം ഒരുങ്ങി ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവർ ഇതിനകം തന്നെ ക്ഷേത്രപരിസരത്ത് അടുപ്പ് കൂട്ടിക്കഴിഞ്ഞു

ഭക്തരുടെ സൌകര്യാർത്ഥം സംസ്ഥാന ഗവൺമെന്റും ക്ഷേത്രം ട്രസ്റ്റും വിവിധ സന്നദ്ധ സംഘടനകളും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഹരിതചട്ടം കർശനമായി പാലിച്ച് പ്ലാസ്റ്റിക് പൂർണമായും ഒഴിവാക്കിയാണ് ഇത്തവണത്തെ പ്രൊങ്കാല

മഥുരയിലെ യമുന എക്സ്പ്രസ്വെയിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ചാണ് ആദ്യത്തെ അപകടം ഈ അപകടത്തിൽ ഏഴ് പേർ മരിക്കുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടാമത്തെ അപകടം ഘതംപൂർ പ്രദേശത്ത് കാൻപൂർ സാഗർ ദേശീയ പാതയിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചാണ് ഉണ്ടായത് ഇതിൽ ഒരു ഐ

എസ് ഓഫീസറുടെ കുടുംബാംഗങ്ങടക്കം അഞ്ച് പേരാണ് മരിച്ചത്

ഇന്നേ ദിവസം വാരാണസിയിലെ സീർ ഗോവർദ്ധൻപൂരിലുള്ള ശ്രീ ഗുരു രവിദാസ് ആസ്ഥാൻ മന്ദിറിൽ വലിയ ആഘോഷ പരിപാടികളാണ് ജനം ഭക്തജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്

സൌദിയിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും മുൻനിര വ്യവസായികളും അദ്ദേഹത്തെ അനുഗമിക്കും ജമ്മു കശ്മിരിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടുംസംസ്ഥാനം നേരിടുന്ന ഭീകരതയും സൌദി മനസ്റ്റിലാക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ബൾഗേറിയ മൊറോക്കോ രാജ്യങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് ശ്രീമതി സുഷമ സ്വരാജ് സ്പെയിനിലെത്തിയത് സ്പെയിനിൽ ഇന്ത്യൻ സമൂഹവുമായി സുഷമ സ്വരാജ് ആശയവിനിമയം നടത്തി

സ്പെയിൻ വിദേശകാര്യമന്ത്രിയുമായി സുഷമ സ്വരാജ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ട്വിറ്ററിൽ അറിയിച്ചു